മണ്ഡലങ്ങളിലേയ്ക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ പരസ്യപ്രചാരണ്ണം മറ്റെന്നാൾ വരെ

നിർണയിക്കാനുള്ള സമിതി ്ഇന്ന് വീണ്ടും യോഗം ചേരുന്നു രണ്ടു ദിവസത്തെ ഏക്രേളാ സന്ദർശനത്തിനായി ന് നെതർലാന്റ്സ് രാജ്വും രാജ്ഞിയും ഇന്ന് കൊച്ചിയിലെത്തും

തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും

കേരളത്തിൽ തുലാവർഷം സജീവമായി

പരക്കെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത പത്ത് ജില്ലകളിൽ യെല്ലോ അലെർട്ട് ഇലക്ഷൻ ജനറൽ സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് പരസ്യപ്രചാരണം മറ്റെന്നാൾ അവസാനിക്കും വിശദാംശങ്ങളുമായി സുരേഷ്

കോൺഗ്രസ് നേതാവ് എ

ആന്റണിയും സി

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് വട്ടിയൂർക്കാവിൽ റോഡ്ഷോയിൽ പങ്കെടുക്കും

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ഇന്ന് വട്ടിയൂർക്കാവിൽ പ്രചാരണം നടത്തും നാളെ സി

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വി

അച്യുതാനന്ദനും നാളെ വട്ടിയൂർക്കാവിൽ പ്രസംഗിക്കും മഞ്ചേശ്വര്ത്ത് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി

ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി എഫ് സ്ഥാനാർത്ഥി വി

പ്രശാന്ത് ഇന്ന് വട്ടിയൂർക്കാവ് കവടിയാർ പേരുർക്കട തുരുത്തുംമൂല എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തും

എ സ്ഥാനാർത്ഥി എസ് സുരേഷ് ഉദിയന്നൂർ കൊടുങ്ങാനൂർ കാഞ്ഞിരംപാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും

ഡി എഫ് സ്ഥാനാർത്ഥി കെ മോഹൻകുമാർ അഞ്ചുമുക്കിൽ നിന്നും പര്യടനം തുടങ്ങി വെയിലിക്കുന്നിൽ സമാപിക്കും കോടിയേരി ജാതിപറഞ്ഞ് വോട്ടു വിടിക്കുന്നവർക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് സി

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു ജാതിമത സംഘടനകൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനിറങ്ങരുതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചിരുന്നു

കൂടുതൽ പേർക്കുള്ള നഷ്ടപരിഹാരം സമിതി നിർണ്ണയിക്കും

മരട് മുനിസിപ്പൽ കൌൺസിലിന്റെ പ്രത്യേക യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട് കൌൺസിലിന്റെ അനുവാദം ലഭിച്ച ശേഷം മാത്രമേ കമ്പനികൾക്ക് പൊളിക്കൽ നടപടികൾ ആരംഭിക്കാൻ കഴിയൂ പാലാരിവട്ടം പാലം പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി റ്റി

റിമാന്റ് കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത് പാലാരിവട്ടം പാലം അഴിമതി കേസിന് പുറമെ ചമ്രവട്ടം പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിൽ സൂരജിനെതിരെ കേസെടുക്കാൻ ഇന്നലെ കോടതി നിർദ്ദേശിച്ചിരുന്നു കൂടത്തായ് കേസ് കൂടത്തായി കൊലക്കേസിൽ ശ്യാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധന നടപടികൾ ആരംഭിച്ചു കൂടത്തായി റോയ് തോമസിന്റെ സഹോദരങ്ങളായ റോജോ റെഞ്ചി റോയ് റ തോമസിന്റെ മക്കൾ എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളെജിലെത്തി ഡി എൻ

കല്ലറ തുറന്ന് ശേഖരിച്ച മൃതദേഹവിഷ്ടങ്ങളുമായി ഡി എൻ എ താരതമൃം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശോധന

രാജദമ്പതികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകും

വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാജാവ് മുഖ്യമന്ത്രി ഒരുക്കുന്ന വിരുന്നിലും പങ്കെടുക്കും നാളെ ആലപ്പുഴയിലെത്തുന്ന രാജാവും രാജ്ഞിയും ഹൌസ്ബോട്ടിൽ ഉല്പാസയാത്ര നടത്തും

പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് അടുത്തു നാലു ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപകമായി ഇടിയോട്ടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ്ട്ക്ക്ര്ന്ദം അറിയിച്ചു കണ്ണൂർ കാസർകോട് പാലക്കാട് തൃശൂർ ഒഴിക് െമറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ശബരിമല തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും

പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ഇന്ന് സന്നിധാനത്തെത്തും ചൊവ്വാഴ്ച രാത്രി പത്തുമണിക്ക് നട അടയ്ക്കും

എഫ് ഒ മാർക്ക് അനുമതി നൽകിയതായി മന്ത്രി കെ

ഇടുക്കി ജില്ലയിൽ വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മിന്തി കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

ആലുവയിൽ നിന്നാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചു ഫോൺ നമ്പറിൽ നിന്നാണ് യുവാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞത് കാലടിയിൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് ഇവരെ കണ്ടെത്തിയത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഊബർ ടാക്സി ഡ്രൈവർ രാഗേഷിനെ ആക്രമിച്ച രണ്ടംഗസംഘം കാറുമായി കടന്നുകളഞ്ഞത്

പ്രളയത്തിനുശേഷം ഇക്കൊല്ലവും മികച്ച വിളവാണ് നെൽ കർഷകർക്ക് ലഭിക്കുന്നത്

സിസ്റ്റർ ലൂസി സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുന്ന് ചൂണ്ടിക്കാണിച്ചുള്ള വത്തിക്കാനിൽ നിന്നുള്ള മറുപടിക്കത്ത് മഠം അധികൃതർ ഒപ്പിട്ടുവാങ്ങി എന്നാൽ താൻ മഠത്തിൽ നീന്ന് ഇറങ്ങില്ലെന്നും പൌരസ്ത്യ തിരുസംഘത്തിന് മുകളിലുള്ളവർക്ക് അപ്പീൽ നൽകുമെന്നും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു

കൊച്ചിയിൽ ലോകനിലവ്വാര ദിനാചരണം വൃവസായികൾ ഉപഭ്ടോക്താക്കൾ തുടങ്ങിയവരിൽ നിലവാരം സംബന്ധിച്ച അവബോധം വളർത്താനാണ് ദിനാചരണം

ആരോഗ്യ സർവ്വകലാശാലയുടെ കീഴിലുള്ള മെഡിക്കൽ ആയുർവേദം ദന്തൽ ഹോമിയോ നഴ്സിങ്ങ് കോളേജുകളിൽ നിന്നായി ആയിരത്തിലധികം പേർ മത്സരത്തിൽ പങ്കെടുക്കും